മരിച്ചവരിൽ ആറ് മലയാളികൾ ഉണ്ടെന്ന് റിപ്പോർട്ട്

ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പ്രപ്ധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി കൊച്ചിയിൽ എത്തും

വിദേശകാര്യമന്ത്രി എസ്ട് ജയ്ശങ്കർ രണ്ട് ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടും

കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ സ്ഥിതിഗതികൾ വിലയിരുത്തു

ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാൻ മൽസരം

മരിച്ചവരിൽ ആറ് മലയാളികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന

മെട്രോ സ്റ്റേഷന് സമീപമുള്ള അൽ റഷ്ദിയയിൽ ബസ് ക്സെൻബോർഡിൽ ഇടിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു

മരണമടഞ്ഞവരിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ എട്ട് പേർ ഇന്ത്യാക്കാരാണ് എന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ടിറ്ററിൽ അറിയിച്ചു രാജഗോപാലൻ ഫിറോസ് ഖാൻ പത്താൻ രേഷ്മാ ഫിറോസ്ഖാൻ പത്താൻ ദീപക് കുമാർ ജമാലുദീൻ അറക്കെവീട്ടിൽ കിരൺ ജോണി വാസുദേവ് തിലക റാം ജവഹർ താക്കൂർ എന്നിവർ മരിച്ചതായി സ്ഥിരീകരിച്ചു മരിച്ചവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിവരുന്നതേയുള്ളൂ പരിക്കേറ്റ ഇന്ത്യാക്കാരിൽ നാല് പേരെ ദുബായിലെ റാഷിദ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വിട്ടയച്ചു പരിക്കേറ്റ മറ്റ് മൂന്നു പേർ ആശുപത്രിയിൽ ചികിൽസ തുടരുന്നതായി കോൺസുലേറ്റ് അധികൃതർ അറിയിച്ചു കോൺസുൽ ജനറൽ വിപുലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ഉദ്യോഗസ്ഥ സംഘവും പരിക്കേറ്റ ഇന്ത്യാക്കാരുടെ ബന്ധുക്കളെ കണ്ട് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തു

മസ്ക്കറ്റിനും ദുബായിക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒമാൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ബസുകൾ ദിനംപ്രതിയുള്ള സർവ്വീസുകൾ മറ്റൊരു മുന്നറിയിപ്പ് ലഭിക്കുന്നതുവരെ താൽക്കാലികമായി നിർത്തലാക്കി

കൊച്ചിയിൽ ഗസ്റ്റ് ഗൌസിൽ തങ്ങുന്ന പ്രധാനമന്ത്രി ശനിയാഴ്ച രാവിലെ നാവിക വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെത്തും ദർശനത്തിന് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഉച്ച്യ്ക്ക് ശേഷം ഡൽഹിക്ക് തിരിച്ചുപോകും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാക്രമീകരണങ്ങൾ വിലയിരുത്താൻ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേർന്നു

ഉച്ചയ്ക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ മലപ്പുറം ജില്ലയിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളിൽ പര്യടനം നടത്തും

കേന്ദ്രമന്ത്രി പദവി ഏറ്റെടുത്തശേഷം എസ് ജയശ്രങ്കർ നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിതെന്ന് വീദേശകാരൃ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു് സന്ദർശനത്തിനിടെ ശ്രീ ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോതായ് ഷെറിങ്ങിമായും വിദേശകാര്യമന്ത്രി താന്തിദോർജിയുമായും കൂടിക്കാഴ്ച നടത്തും

എല്ലാവരുടെയും പരിശോധനാഫലം പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ചു ഇപ്പോൾ കൊച്ചിയിൽ സ്ഥകാര്യ ആശുപത്രിയിൽ ചികിൽസയിലുള്ള വിദ്യാർത്ഥികൾക്കു മാത്രമാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരുടെ ആരോഗൃനില തൃപ്തികരമാണെന്ന് മന്ത്രി കെ

പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്ുളള സംഘം രോഗ വ്യാപനം സംശയിക്കുന്ന പ്രദേശങ്ങളില്ല് വവ്വാലുകളെയും മറ്റ് മൃഗങ്ങളേയും പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ്

ഇന്തൃൻ നാവിക സേനാ വിമാനം ഇന്ന് നിരീക്ഷണ പറക്കൽ നടത്തും സമീപ പ്രദേശത്തെ കാടുകൾ ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിലും വിമാനത്തിനായി തിരച്ചിൽ നടത്തും

ചെറുകിട വ്യാപാരികൾക്കൊപ്പം കയറ്റുമതിക്കാർക്കും പുതിയ വീട് വാങ്ങുന്നവർക്കും നയം പ്രയോജനപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

എസ് ഇടപാടുകളിലെ സർവ്വീസ് ചാർജ്ജ് നിർത്തലാക്കിയത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നും മന്ത്രി പറഞ്ഞു

സാരസ്വത് ശ്രീ രമേശ് ചന്ദ് ഡോ

പോൾ എന്നിവർ മുഴുവൻ സമയ അംഗങ്ങളായിരിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് ്സിംഗ് ആഭൃന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൃഷി വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ എന്നിവർ എക്സ് ഓഫീഷ്യോ അംഗങ്ങളായിരിക്കും ഉപരിതല ഗതാഗത മന്ത്രി നിഥിൻ ഗഡ്കരി സാമൂഹ്യനീതി ശാക്തീകരണം വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെലോട്ട് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണ വകുപ്പ് മന്ത്രി റാവു ഇന്ദർജിത്ത് സിംഗ് എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായിരിക്കും

ഗംഗാഖേദ് പഞ്ചസാര ഊർജ്ജ സ്വകാരൃ ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാനായ രത്നാകർ ഗുട്ടെക്കിന് എതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ബി ജെ പി യുടെ സഖ്യകക്ഷിയായ രാഷ്ട്രീയ സമാജ് പാർട്ടിയിലെ അംഗമാണ് രത്നാകർ ഗുട്ടെ

മൻസൂർ അഹമ്മദ് ബേഗ് എന്ന ജവ്വാന് നേരെ അദ്ദേഹത്തിന്റെ വസതിയിൽവെച്ച് തീവ്രവാദികൾ വെടിയുതിർത്തതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു വെടിവയ്പ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ജവാൻ ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപേ മരണപ്പെട്ടിരുന്നു

അണ്വായുധങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതു സംബന്ധിച്ച കരാർ നിലനിർത്താൻ അമേരിക്ക താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഉച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രിയെ ബി ജെ

നാളെ കോഴിക്കോടും അദ്ദേഹം സ്വീകരണം ഏറ്റുവാങ്ങും

ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുന്നതിനാണ് അലർട്ട് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിന്റെ സൂചന നൽകുന്ന മഞ്ഞ അലർട്ട് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് തയ്യാറെടുപ്പുകൾ നടത്താനും താലൂക്ക് താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകൾ തുറക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മറ്റന്നാൾ കേരളകർണാടക തീരത്തോട് ചേർന്നുള്ള മധ്യകിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

അതിനാൽ ഈ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

ടൂർണ്ണമെന്റിലെ ഓസ്ട്രേലിയയുടെ രണ്ടാം വിജയമാണിത് ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും

സിന്ധു സമീർ ്വർമ്മ സായ് പ്രണിത് വി

സിന്ധു തായ്ലൻഡിലെ നിത്ചാവൺ ജിൻഡാപോളിനോട്ടാണ് പരാജയപ്പെട്ടത്